പാർലമെന്റ് ശീതകാലസമ്മേളനം നാളെ ആരംഭിക്കും

ആൾക്കൂട്ട അതിക്രമവും കൊലപാതകങ്ങളും തടയാൻ നിയ മനിർമ്മാണം നടത്തുന്ന കാര്യം പാർലമെന്റ് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി നിർദേശിച്ചു ആൾക്കൂട്ടത്തിന്റെ ഭീകരമായ അതി ക്രമങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു

പശുവിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ മാർഗ നിർദേശങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി ഉത്തരവ് പശുവിന്റെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട അക്രമങ്ങൾ തടയുന്നതിന് ശക്തമായ നിയമനിർമ്മാ ണങ്ങൾ വേണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റു കൾക്ക് കോടതി കർശന നിർദേശം നൽകി ജനക്കൂട്ടം ഒരാളെ ക്രൂരമായി തല്ലിച്ചതക്കുന്നത് അപരിഷ്കൃതവും അപമാനകരവും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുമാണ് ഇത്തരം പ്രവൃത്തികളെ ഉരുക്ക് മുഷ്ടികൊണ്ട് നേരിടണമെന്നും രാജ്യത്തെ ഒരാൾക്കും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ആൾക്കൂട്ട അക്രമങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടി സ്വീക രിച്ചശേഷം അതുസംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് രണ്ടാഴ്ച ക്കകം സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു കോഴിയെ മോഷ്ടിച്ചെന്നാരോപിച്ച് കൊല്ലത്ത് അന്യസം സ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം മർദ്ദിച്ചുകൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടാം പ്രതി പൊലീസിൽ കീഴടങ്ങി അഞ്ചൽ സ്വദേശി ആസിഫാണ് കീഴടങ്ങിയത് ഒന്നാം പ്രതി ശശിധരക്കു റുപ്പിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു പശ്ചിമബംഗാൾ സ്വദേശി മണിക് റോയിയാണ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മരിച്ചത് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇനി ഒരു ജീവനും പൊലിയാൻ പാടില്ലെന്ന് ഹൈക്കോടതി വൃക്തമാക്കി ക്യാമ്പസു കൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുവേണ്ടി മാത്രമുള്ളതല്ലെന്നും കോടതി പറഞ്ഞു ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്നാ വശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോ ടതി നിരീക്ഷണം

മഹാരാജാസിലെ സംഭവവും ഗവൺമെന്റ് പാഠമായി എടുക്കണമെന്നും കോടതി പറഞ്ഞു കലാലയ രാഷ്ട്രീയത്തിന് മാർഗനിർദേശം തയ്യാറാക്ക ണമെന്നും ഹൈക്കോടതി ഗവൺമെന്റിനോടാവശ്യപ്പെട്ടു മറുപടി നൽകാൻ മൂന്നാഴ്ച സമയം വേണമെന്ന് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു

പശ്ചിമബംഗാളിലെ മിഡ്നാപൂരിൽ കർഷക റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ ആദ്യപടിയെന്ന നിലയിലാണ് ഖാരിഫ് വിളകളുടെ താങ്ങുവില ഒന്നരയിരട്ടി വർധിപ്പിച്ചത് രാജ്യവികസനത്തിൽ കർഷകർ വളരെ നിർണാ യകമായ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സമ്മേ ളനം സുഗമമാക്കുന്നതിന് പാർലമെന്ററികാര്യമന്ത്രി അനന്ത്കുമാർ വിളിച്ച സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു വൈകിട്ട് ലോക്സഭാസ്പീക്കർ സുമിത്രമഹാജനും സർവ കക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെ ടുപ്പിലും ജനകീയ പ്രശ്നങ്ങളിലും ഗവൺമെന്റിനെതിരെ യോജിച്ച് പോരാടാൻ ഇന്നലെ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം തീരു മാനിച്ചിരുന്നു ദളിതർക്കെതിരായ അക്രമങ്ങൾ കാർഷിക മേഖല യിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ച യാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുത്തലാഖ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഒ

വനിത സംവര ണബിൽ പാസ്സാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോ ദിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കത്തയച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും മദർതെരേസ സ്ഥാപിച്ച മിഷനറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന അഭയകേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്ര വനിത ശിശുവികസന മന്ത്രി മനേക ഗാന്ധി ഉത്തരവിട്ടു അഭയകേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ അനധി കൃതമായി ദത്തുനൽകുന്നു എന്ന പരാതികളെ തുടർന്നാണ് എല്ലാ അഭയകേന്ദ്രങ്ങളും ഉടൻ പരിശോധിക്കാൻ ഉത്തരവിട്ടത് ഝാർഖ ണ്ഡിലെ മിഷനറിയ്ക്ക് കീഴിലെ കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ അനധികൃതമായി ദത്തുനൽകുന്നുവെന്ന പരാതികളെ തുടർന്നാണ് നടപടി

ലോക്പാൽ നിയമനത്തിന് നിയോഗിച്ച സെലക്ഷൻ കമ്മറ്റി മറ്റന്നാൾ യോഗം ചേർന്ന് സെർച്ച് പാനൽ രൂപീകരിക്കുമെന്ന് കേന്ദ്രഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു

പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ലോക്സഭാസ്പീക്കർ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് നിയമനരംഗത്തെ ഒരു പ്രഗൽഭ വൃക്തി എന്നിവർ സെല ക്ഷൻ കമ്മറ്റി അംഗങ്ങളാണ്

മുതിർന്ന അഭിഭാഷകൻ ശാന്തിഭൂഷൺ ലോക്പാൽ നിയമനം സംബന്ധിച്ച് സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുക യായിരുന്നു ഡിവിഷൻ ബെഞ്ച്

റോഡ് നിർമാണ കരാർ സ്ഥാപനമായ എസ്പികെ കമ്പനിയുടെ വിവിധ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിലാണ് ഇവ പിടിച്ചെടുത്തത്

ആദായ നികുതി വകുപ്പിന്റെ ചെന്നൈ ഘടകമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് നിർമാണ കമ്പനി നികുതി വെട്ടിപ്പ് നടത്തിയതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കുമ്പസാര രഹസ്യം ചോർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ട മ്മയെ പീഡിപ്പിച്ച കേസിൽ പ്രതികളായ വൈദികരുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഒന്നാം പ്രതി ഫാദർ സോണി വർഗീസും നാലാം പ്രതി ഫാദർ ജെയ്സ് കെ ജോർജ്ജുമാണ് കോടതിയെ സമീപിച്ചത് അറസ്റ്റ്ചെയ്യാൻ സാധ്യ തയുണ്ടെന്നും ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണ മെന്നുമാണ് ഹർജിയിലെ ആവശ്യം ഹർജി ഇന്നലെ പരിഗണി ക്കണമെന്ന ആവശ്യം തള്ളി ചീഫ്ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷ നായ ബെഞ്ച് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു

പി യുടെ വർഗീയതക്കെതിരെ എല്ലാ കോൺഗ്രസു കാരും ഒറ്റക്കെട്ടാണെന്ന് ഡോ ശശി തരൂർ എം

വർഗീ യതയെ എങ്ങനെ ചെറുക്കാമെന്നാണ് പാർട്ടി ആലോചിക്കുന്ന തെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഹിന്ദു എന്നത് എല്ലാവരെയും ഉൾകൊള്ളുന്ന മതമാണെന്നും ഡോ

കോൺഗ്രസ് സംഘടനയായ വിചാർ വിഭാഗ് രാമായണ മാസം ആചരിക്കാൻ തീരുമാനിച്ചതിൽ തെറ്റില്ലെന്നും എന്നാൽ പാർട്ടിയ്ക്കകത്ത് രണ്ട് അഭിപ്രായം ഉയർന്നതിനാലാണ് ഇത് മാറ്റിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും തെക്കൻ ജില്ലക ളിൽ പലയിടത്തും മഴ തുടരുകയാണ് മലപ്പുറത്തും കോട്ടയം മുണ്ടക്കയത്തും ഓരോ മരണം റിപ്പോർട്ട് ചെയ്തു പലയിടങ്ങ ളിലും മഴയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ആലപ്പുഴയിൽ നീർക്കുന്നം തീരത്തടിഞ്ഞ ബാർജിൽ കൂടു ങ്ങിയ ജീവനക്കാരെ നാവികസേന രക്ഷപ്പെടുത്തി

അബുദാബി അൽഫത്താൻ ഡോക്കിന്റെ ബാർജ് മൂന്നുദിവസം പുറംകടലിൽ കഴിഞ്ഞ ശേഷം ഇന്നലെയാണ് തീരത്തടിഞ്ഞത്

കപ്പലിന് പിന്നിൽ കെട്ടിവലിച്ചുകൊണ്ടുപോകുകയായി രുന്ന ബാർജ് ശക്തമായ തിരമാലയിൽ വടംപൊട്ടി വേർപ്പെട്ടതാ കാമെന്നാണ് പ്രാഥമിക നിഗമനം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് റെക്കോർഡ് നിലയിലെത്തി

ഒൻപത് പേരാണ് കെടുതിയിൽ മരിച്ചത്

കനത്ത മഴയിലും കാറ്റിലും കാസർകോട് ജില്ലയിലെ മലയോരത്ത് വൻ നാശനഷ്ടം തുടരുന്നു പാത്തൂർ കുണ്ടുപള്ളിയിൽ വീടിന് മുകളിൽ മരംവീണ് വീടിനും സ് കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു ഇന്നലെ രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലുമാണ് നാശനഷ്ട ങ്ങളുണ്ടായത്

സെക്ഷന് കിഴിലുള്ള ആടകം പാത്തിക്കര ചുള്ളിയോടി കുടുംബൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വൈദ്യുതി തൂണുകൾ തകർന്നത് തീരപ്രദേശങ്ങളിൽ ശകതമായ കരയിടിച്ചിൽ കാരണം നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്

ശക്തമായ തിരമാലകൾക്കും സാധ്യത യുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദേ ശിച്ചിട്ടുണ്ട്

പാലക്കാട് ജംഗ്ഷൻ തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിച്ച് അവിടെനിന്നായിരിക്കും പുറപ്പെടുക എന്ന് റെയിൽവെ അറിയിച്ചു ഇന്ത്യാ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമ ത്തെയും അവസാനത്തെയും മത്സരം വൈകിട്ട് ലോഡ്സിൽ

ഇതോടെ ഇന്നത്തെ മത്സരം നിർണായകമാണ്